ക്രിസ്റ്റലിന ജോർജിയേവയെ തെരഞ്ഞെടുത്തു

കേരളത്തിൽ പാലാ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ

ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും

കരീബിയൻ ദ്വീപ് രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയാണ് കാരികോം എന്ന പേരിൽ അറിയപ്പെടുന്നത്

നേരത്തെ ന്യൂസിലാന്റ് അർമീനിയ എസ്തോണിയ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായി ശ്രീ

ബി എം

ഇ ഒ ഗിന്നി റോമെത്തി വാൾമാർട്ട് സി ഇ ഒ ഡഗ്ലസ് മക്മില്ലൻ കൊക്കക്കോള സി ഇ ഒ ജയിംസ് ക്വിൻസി ലോക്ക് ഹീഡ് മാർട്ടിൻ സി

ഒ മാരിലിൻ ഹീസൺ ജെപിമോർഗൻ സി ഇ ഒ ജാമി ഡിമോൺ ഇന്തോ യു എസ് സി ഇ ഒ ഫോറം അധ്യക്ഷനും അമേരിക്കൻ ടവർ കോർപ്പറേഷൻ അദ്ധ്യക്ഷനുമായ ജയിംസ് ഡി തെയ്സ്ലെറ്റ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ആപ്പിൾ ഗൂഗിൾ മാരിയറ്റ് വിസ മാസ്റ്റർകാർഡ് ബാങ്ക് ഓഫ് അമേരിക്ക പെപ്സി തുടങ്ങിയവയുടെ പ്രതിനിധികളും ചർച്ചയ്ക്കെത്തി വാണിജ്യമന്ത്രി പിയൂഷ് ഗോയലും പങ്കെടുത്തു

ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാനുള്ള സന്നദ്ധത കമ്പനി മേധാവികൾ വ്യക്തമാക്കി വൈദഗ്ദ്ധ്യ വികസനം ഡിജിറ്റൽ ഇന്ത്യ മെയ്ക്ക് ഇൻ ഇന്ത്യ സമഗ്ര വികസനം ഹരിതോർജം എന്നിവയിൽ തങ്ങളുടെ നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വച്ചു രാഷ്ട്രീയ സ്ഥിരതയും നയവ്യക്തതയും വികസനത്തിനും വളർച്ചയ്ക്കും അനുകൂലമായ നിലപാടുമാണ് പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞത് വിനോദസഞ്ചാര വികസനം പ്താസ്റ്റിക് പുനരുപയോഗം മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയിൽ സ്വീകരിച്ച നടപടികൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി കാർഷിക മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന തരത്തിൽ ചെറുകിട ഇടത്തരം വ്യവസായ യൂണിറ്റുകളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനായെന്നും അദ്ദേഹം പറഞ്ഞു മറ്റ് രാജ്യങ്ങളുമായി സഹകരിച്ചുള്ള സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതികൾ ഇന്ത്യയ്ക്കു മാത്രമല്ല ലോകത്തിനു തന്നെ ഗുണകരമാണ്

ന്യൂയോർക്കിൽ ഇന്നലെ ബ്ലൂംബെർഗ് ആഗോള ബിസിനസ് ഫോറഒത്ത് അഭിസംബോധന ചെയ്യവെ ആഗോള നിക്ഷേപകർക്ക് അവരുടെ പ്രവർത്ത്നം വിപുലപ്പെടുത്താനുള്ള അനുയോജ്യ സ്ഥലമാണ് ഇന്ത്യയെന്ന് ശ്രീ ന്ന്രേന്ദ്രമോദി പറഞ്ഞു

ആഗ്ഗോള വ്യവസായ പ്രമുഖരുടേയും ഇന്ത്യാ ഗവൺമെന്റിന്റെയും വീക്ഷണഗതി ഒന്നാണെന്ന് അദ്ദേഹം പറഞ്ഞു

ന്യൂയോർക്കിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ശ്രീ

പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് പതിനാലായിരം കോടി രൂപ വായ്പയെടുത്ത ശേഷം രാജ്യം വിട്ട ചോക്സി സംഭവം വിവാദമായതോടെ ആന്റിഗ്വയിൽ കുടിയേറി അവിടത്തെ പൌരത്വം സ്വീകരിക്കുകയായിരുന്നു

ബുധൻ ശനി ദിവസങ്ങളിലാണ് സർവ്വീസുകൾ വിനോദസഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും വളരെ കാലമായുള്ള ആവശ്യമാണ് ഈ റൂട്ടിലുള്ള വിമാന സർവ്വീസെന്ന് എയർ ഇന്ത്യ അറിയിച്ചു ചെറുപട്ടണങ്ങളെ വൻ നഗരങ്ങളുമായി ബന്ധിപ്പിക്കാനുള്ള എയർ ഇന്ത്യയുടെ പദ്ധതിയുടെ ഭാഗമായാണിത്

അടുത്ത മാസം ഒന്നിന് ചുമതലയേൽക്കുന്നത്

ലോകബാങ്ക് സി ഇ ഒ ആയും ഇടക്കാല പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് ആഗോള സമ്പദ്വ്യവസ്ഥ കടുത്ത പ്രത്യസ്സ്ഡി നേരിടുമ്പോൾ ഐ

എഫ് മേധാവിയായി പ്രവർത്തിക്കുന്നത് കൂടുത്തിവെല്ലുവിളിയും ഭാരിച്ച ഉത്തരവാദിത്തവുമാണെന്ന് ജോർജിയ്യേവ പറഞ്ഞു ആഗോള സാമ്പത്തിക സംവിധാനത്തിന്റെ സ്ഥിരത അന്ത്യാർട്ട്ട സഹകരണത്തോടെ ഉറപ്പാക്കാനാകുമെന്നാണ് വിശ്പാസ്ക്മന്നും അവർ പറഞ്ഞു

വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന പാലാ കാർമൽ സ്കൂളിലാണ് വോട്ടെണ്ണൽ നടക്കുക

നാളെ രാവിലെ എട്ട് മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും

റെയിൻബോ ശൃംഖലയിലും കേൾക്കാം

സമൂഹമാധ്യമങ്ങളിലൂടെ ഇത്തരം വിവരങ്ങൾ പ്രചരിക്കുന്നതായി മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്

പൊതുമേഖലാ ബാങ്കുകളെ ശക്തിപ്പെടുത്താനും കൂടുതൽ പണം പൊതുജനങ്ങളിലെത്തി ക്കാനുമാണ് റിസർവ്വ് ബാങ്കിന്റെ ശ്രമം